ലൈഫ് പാർപ്പിട പദ്ധതിയിൽ അടുത്ത വർഷം ജനുവരിയോടെ കേരളത്തിൽ നൂറ് ഭവന സ്മുച്ചയങ്ങൾ പൂർത്തിയാക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

ദുരിതം വിലയിരുത്തുന്നതിനായി കേന്ദ്രസംഘത്തെ അയയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇരുസംസ്ഥാനങ്ങളിലേയും ദുരന്തവൃാപ്തി വിലയിരുത്താൻ പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം നടത്തി തുടർന്ന് നടന്ന അവലോകന യോഗങ്ങൾക്കുശേഷമാണ് പ്രധാനമന്ത്രി ക്ലോന്ടു സഹായം പ്രഖ്യാപിച്ചത് ജനജീവിതം സാധാരണനിലയിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞുട്ട് ഇന്നലെ ആദ്യം ബംഗാൾ സന്ദർശിച്ച പ്രധാനമന്ത്രി വൈകിട്ടോടെയാണ് ് ഒഡീഷയിലെത്തിയത്

ഇ യിൽ നിന്ന് നാലും ഒമാനിൽ നിന്ന് മൂന്നും വിമാനങ്ങൾ ഇന്ന് ഇന്തൃയിലെത്തും

അബുദാബിയിൽ നിന്നും ഒരു വിമാനം കണ്ണൂരിലേക്കും ദുബായിൽ നിന്നും ഓരോ ഫ്ളൈറ്റ് വീതം കോഴിക്കോട് ബംഗളൂരു തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുമാണ് ഇന്നെത്തുന്നത്

ആറു മാസം കഴിയുമ്പോൾ ലോകം ആദരവോടെ ഉറ്റുനോക്കുമെന്ന് ഒരു ടെലിവിഷൻ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഏറെ സഹായകരമായെന്നും ഡോ

കുടിയേറ്റ തൊഴിലാളികൾക്ക് ആവശ്യിമായ ട്രെയിനുകൾക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അനുമതി് നൽകുന്നില്ല കോവിഡിനെ നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത തീരുമാനങ്ങളെ ലോകമാകെ പ്രശംസിക്കുകയാണെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

ലാഹോറിൽ നിന്നു കറായിച്ചിലേക്ക് പറന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനമാണ് തകർന്നുവീണത് ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പായിരുന്നു അപകടം

മരിച്ചവരിൽ യാത്രക്കാരെയും പ്രദേശവാസികളെയും വെവ്വേറെ തിരിച്ചറിഞ്ഞിട്ടില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജിന്നാ ഗാർഡൻ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ബാങ്ക് ഓഫ് പഞ്ചാബ് പ്രസിഡന്റ് സഫർ മസൂദ് ഉൾപ്പെടെ രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ഉത്തരവിട്ടു

എച്ച്

ഇരുവരും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കൂടുതൽ അന്വേഷണത്തിന് കസ്റ്റഡിയിൽ വേണമെന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം മുംബൈയിലെ പ്രത്യേക കോടതി ഇന്നലെ അംഗീകരിച്ചു യെസ് ബാങ്ക് സഹസ്ഥാപകനായ റാണാ കപൂർ ഉൾപ്പെട്ട പണമിടപാട് കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്

വിവിധ ജില്ലകളിൽ ഇതിനായി മുന്നൂറ്റോള്ട് സ്ഥലങ്ങൾ ലൈഫ് മിഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നൂറോളം ്ക്യേന്ദ്രങ്ങളിൽ വൈകാതെ നിർമാണം ആരംഭിക്കും

ഒമ്പതെണ്ണം ഉടൻ തുടങ്ങും

ഇതനുസരിച്ച് രോഗലക്ഷണം കാണിക്കാത്ത ആരോഗ്യ പ്രവർത്തകർക്കും കണ്ടെയ്ൻമെന്റ് സോണിലും ചികിത്സയിലും ഉള്ളവർക്കും ഹൈഡ്രോക്സി ക്ലോറോകിൻ ശുപാർശ ചെയ്തിട്ടുണ്ട്

ഒരു ദിവസത്തിലെ ഏറ്റവും അധികം കേസുകളാണ് സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്

ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള പാക്കേജുകളൊന്നും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

റിപ്പോ നിരക്കുംക്ക് റിവേഴ്സ് റിപ്പോ നിരക്കും വീണ്ടും കുറച്ചു